പൊറുക്കില്ലെന്നും ക്രിമിനൽ ഭേദഗതി നിയമത്തിലൂടെ ഇത്തരക്കാർക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ത്യയ്ക്ക് ഇന്ന് രണ്ട് വെള്ളി മെഡൽ വീതം ലഭിച്ചു

ഈ വിഷമഘട്ടത്തിൽ രാജ്യം മുഴുവൻ കേരളത്തോടൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അപകടം ഉണ്ടാകുന്നത് കേരളത്തിലാണെങ്കിലും മറ്റേതെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും രാജ്യം ഈ പ്രതിസന്ധി നേരിടാൻ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണം സായുധ സേന ജവാന്മാർ കേരളത്തിലെ ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കു വഹിക്കുന്നു മൂന്ന് സേനാവിഭാഗങ്ങളിലേയും അംഗങ്ങൾ ഈ ഘട്ടത്തിൽ ആത്മാർത്ഥമായ സേവനമാണ് നിർവ്വഹിച്ചത് കേരളത്തിന് ഈ ആപത്തിൽ നിന്ന് എത്രയും വേഗം കരകയറാൻ കഴിയട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

ജീവിതത്തിന്റെ എല്ലാമേഖലയുമായും ബന്ധപ്പെട്ട അറിവിന്റെ ഭണ്ഡാരം സംസ്കൃതഭാഷയിലും സാഹിത്യത്തിലുമുണ്ട് ശാസ്ത്രം തന്ത്രം കൃഷ്ണി ആരോഗ്യം ജോതിഷശാസ്ത്രം വാസ്തുവിദ്യ ഗണ്ണിത് സാമ്പത്തികശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലേയും മൃന്യങ്ങൾ വേദങ്ങളിലുണ്ട് ഇത്തരം വേദങ്ങളുടെ അനന്തമായി സ്ാധ്യതകൾ ഉദ്ഘോഷിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്ടർമാധികാര സഭയായ പാർലമെന്റ നടപടികളെക്കുറിച്ച് ചർച്ച് ക്ചയ്യുമ്പോൾ അവിടത്തെ തടസ്സങ്ങളെക്കുറിച്ചും ക്ട്രോല്ലാഹലങ്ങളെ കുറിച്ചും നടപടികൾ തടസ്സപ്പെടുന്നതിനെ കുറിച്ചും പരാമർശമുണ്ടാകാറുണ്ട് പാർലമെന്റിൽ നടക്കുന്ന നല്ലകാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല

ബലാൽസംഗ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർക്കു കടുത്ത ശിക്ഷ വൃവസ്ഥചെയ്യുന്ന ക്രിമിനിൽ നിയമ ഭേദഗതി ബിൽ നിർണ്ണായകമാണ് ഇത്തരക്കാർക്ക് കുറഞ്ഞത് പത്തുവർഷം തടവു ശിക്ഷ ഉറപ്പാക്കുന്നതാണ് നിയമം പന്ത്രണ്ട് വയസ്സിനു താഴെ പ്രായമുള്ള പെൺകുട്ടികളെ ബലാൽസംഗം ചെയ്യുന്നവർക്കു വധശിക്ഷ നൽകാനും നിയമത്തിൽ വൃവസ്ഥയുണ്ട് ലോകമെമ്പാടും പ്രകൃതി ദുരന്തങ്ങൾ നേരിടുമ്പോൾ ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾക്ക് സ്ചട്രക്ച്ചറൽ എഞ്ചിനീയറിംഗ് ഏതു വിധത്തിൽ പ്രയോജനപ്പെടുത്തണം എന്ന കാര്യം ഗൌരവമായി ചിന്തിക്കേണ്ടതുണ്ട് ഇതിന് അനുഗുണമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതി മാറ്റേണ്ടതുണ്ടെന്ന് പ്രതിപാദിച്ചു കൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ മൻകീ ബാത്ത് പ്രഭാഷണം ഉപസംഹരിച്ചത്

അൽദബാദർ ഭീകര സംഘടനയിൽ പുതുതായി ചേർന്ന നാലു ഭീകരരാണ് ഇവർ കരസേനയും പൊലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് ഇവരെ പിടികൂടിയതെന്ന് കരസേന വക്താവ് പറഞ്ഞു

ബലാൽസംഗം ചെയ്ത ശേഷം പ്രതി കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കമൽ കിഷോർ വർമ്മ പറഞ്ഞു

റെയിൽ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു സംസ്ഥാനത്തെ തേരായികിഴക്കൻ മേഖലകൾ ഇപ്പോഴും വെള്ളപ്പൊക്ക കെടുതിയിലാണ് പാളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മൊറാദാബാദ് റെയിൽവേ ഡിവിഷനിൽ നിരവധി ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്

സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ തുടരുകയാണ് ഗംഗ യമുന രാംഗംഗ ദേവഹ തുടങ്ങിയ നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ മൂന്നു കമ്പനികളെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട്

കമർപൂർ ഗ്രാമത്തിൽ വൃാജമദൃം കഴിച്ചതു മൂലം ചൊവ്വാഴ്ച അഞ്ചുപേർ മരിക്കുകയും ഒൻപത് പേർ രോഗബാധിതരാവുകയും ചെയ്തിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ പോലീസുകാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതായി ഏക്ക്ഐസ് വകുപ്പ് അധികൃതർ അറിയിച്ചു

രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം യാത്രികർ ഇന്നലെവരെ അമർനാഥ് ദർശനം നടത്തിയാണ് കണക്ക്

മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി

പണി പൂർത്തിയാകുമ്പോൾ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായിരിക്കും ഇത്

മലേഷൃയിലെ ജക്കാർത്തയിൽ നടക്കുന്ന ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ സൈന നെഹ്വാളും പി

ഇതോടെ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇരുവരും മെഡലുറപ്പാക്കി